തെരഞ്ഞെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി

ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സങ്കര ഊർജോൽപാദന പാർക്ക് പാൽ സംസ്കരണ പാക്കിംഗ് പ്ലാന്റ് എന്നി പദ്ധതികളും പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നവയിൽ ഉൾപെടുന്നു

വിശദാംശങ്ങളുമായി ജോസ്ന

വ്യാപിച്ചുകിടക്കുന്ന ഈ ്പാർക്കിൽ കാറ്റിൽ നിന്നും സൌരോർജ്ജ ത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കും കച്ചിലെ മാന്ദ്വിയിലാണ് സമുദ്രജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്നത്

കോച്ചിഡ് കാലഘട്ടത്തിൽ രാജ്യത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ ന്നിന്ന് രക്ഷിക്കാൻ കാർഷിക മേഖലക്ക് കഴിഞ്ഞു കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണത്തിലൂടെ രാജ്യത്തെ സംഭരണ കേന്ദ്രങ്ങൾ നീറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു

കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി നേരിടാൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

ന്യൂഡൽഹിയിൽ കേന്ദ്രസർക്കാരിലെ പുതിയ കാർഷികപരിഷ്കരണ നിയമങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു

ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കർഷകരുടെ സംഘവും ഹരിയാനയിൽ നിന്ന് ഭാരതീയ കിസാൻ യൂണിയൻ മാൻ വിഭാഗം അടക്കം രണ്ട് സംഘടനകളും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്

ടിബറ്റിൽ ചൈനയിലെ ചില വികസന പ്രവർത്തനങ്ങൾ നടത്തിയതാണ് അതിർത്തിയിൽ ഇരുരാജൃങ്ങളും മുഖാമുഖം നിലയുറപ്പിക്കാനിടയായ തെന്നും അദ്ദേഹം കൊൽക്കത്തയിൽ പറഞ്ഞു

എന്ന വിഭാഗത്തിൽപെടുന്ന നാലാമത്തെ കപ്പലാണ് ഷ്ടിമഗ്രീരി മൂന്ന് കപ്പലുകൾ കൂടി നിർമിക്കാനും നാവികസേന പദ്ധതിയുണ്ട്

നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ അംഗം ഡോ

ത്രിതല പൊതുജനാരോഗൃ സംവിധാനത്തെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി സമന്വയിപ്പിച്ചുള്ള വീക്ഷണം വ്യക്തമാക്കുന്നതാണ് ധവളപത്രം വിപുലീകരിച്ച ചികിൽസാ ശൃംഖലകളുടെ ആവശ്യകതയും മെച്ചപ്പെട്ട ലബോറട്ടറി സംവിധാനത്തിന്റെ ആവശ്യകതയും വൃക്തമാക്കുന്നതാണ് ധവളപത്രം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകു എന്നും നിർദേശിക്കുന്നു

ഒന്നും രണ്ടും ഘട്ടങ്ങളെ അപേക്ഷിച്ച് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമകണക്കു്കൾ പുറത്തുവരുന്നതോടെ ഈ നിലയിൽ ഇനിയും മാറ്റം വ്യശാനാണ് സാധ്യത

കോഴിക്കോട് ബേപ്പൂരിൽ വേട്ട് ചെയ്ത് മടങ്ങിയ വയോധിക ഹൃദയാഘാതം മൂലം മരിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സിപിഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരും ഇന്ന് വോട്ട് ചെയ്ത പ്രമുഖരിലുണ്ട്

അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം സാഹചര്യത്തെ നിയന്ത്രണവിധേയമാക്കാൻ സഹായിച്ചുവെന്നും ശ്രീ

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാസങ്ങളായി അടച്ചിട്ടിരുന്ന ബീച്ചുകളാണ് ഇന്ന് വീണ്ടും തുറന്നത് ചെന്നൈയിലെ മറീന ബീച്ച് മഹാബലിപുരം ഉൾപ്പെടെയുള്ള ബീച്ചുകളാണ് കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തുറന്നത്